ഹാഫിസ് സയിദ് പാകിസ്ഥാനിൽ അറസ്റ്റിലായി

കോടതിയുടെ വിധി പ്രസ്താവിം അ്ല്പസമയത്തിനകം കർണാടകയിൽ എച്ച്

എൽ എമാരെ ക്ടിയ്മ്സഭയിലെത്താൻ നിർബന്ധിക്കരുതെന്ന് സുപ്രീംകോടതി

കമ്മീഷനിലും നടക്കുന്ന ക്രമക്കേടുകൾ സി ബി ഐ അന്വേഷിക്കണമെന്ന് കെ

സി പ്രസിഡന്റ് മൂല്ലപ്പളളി രാമചന്ദ്രൻ ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം

പര്യടനത്തിനുളള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ മറ്റെന്നാൾ പ്രഖ്യാപിക്കും

പാകിസ്ഥാന്റെ തീവ്രവാദ വിരുദ്ധ വകുപ്പ് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നാണ് ഹാഫിസിനെ അറസ്റ്റ് ചെയ്തത് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതായി പാക് മാധ്യമങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രാജ്യാന്തര തലത്തിലുള്ള സമ്മർദ്ദം ശക്തമായതിനെ ്തുടർന്നാണ് പാകിസ്ഥാന്റെ നടപടി ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇതിനായി പണം സംഭരിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ഹാഫിസ് സയിദിനെതിരെ നിരവധി കേസുകൾ പാകിസ്ഥാനിലുണ്ട്

കുൽഭൂഷൺ ജാദവ് വോയിസ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പാകിസ്ഥാനിലെ ജയിലിൽ കഴിയുന്ന മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ ജാദവിന്റെ അപ്പീൽ ഹർജിയിൽ അല്പസമയത്തിനകം അന്താരാഷ്ട്ര നീതി ന്യായ കോടതി വിധി പ്രസ്താവം നടത്തും

എന്നാൽ ഇന്ത്യ യുടെ ഹർജ്ജി പരിഗണിച്ച് വധശിക്ഷ അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർത്തിവച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എ മാർ നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാൻ നിർബ്ഡിക്കരുതെന്ന് സുപ്രീംകോടതി

എൽ എ മാ രുടെ രാജ്യ സംബന്ധിച്ച തീരുമാനമെടുക്കാൻ സ്പീക്കർ കെ ആർ രമേശ്കുമാറിന് പൂർണ സ്വാതന്ത്ര്യമുണ്ടെന്ന് ചീഫ്ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള ബഞ്ച് വ്യക്തമാക്കി സ്പീക്കറുടെ തീരുമാനം കോടതിയെ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വിഷയത്തിൽ താമസിയാതെ തീരുമാനമെടുക്കുമെന്നും എം എൽ എ മാരെ അയോഗ്യരാക്കേണ്ട വിഷയം ഇപ്പോൾ പരിഗണിക്കുന്നില്ലെന്നും സ്പീക്കർ രമേഷ് കുമാർ വ്യക്തമാക്കി

കർണാടകയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ സുപ്രീംകോടതിയുടെ വിധി ചരിത്രപരമാണെന്നും സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ബി

ശിക്ഷ പ്രത്യേകം അനുഭവിക്കണമെന്ന് കൊല്ലം പോക്സോ കോടതി വിധിച്ചു പ്രതിയായ രാജേഷ് കുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവാണ്

ലോകനാഥ് ബെഹ്റ സാമൂഹിക വിരുദ്ധശക്തികളെയും ഗുണ്ടാസംഘങ്ങളെയും കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേക യജ്ഞം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവി ലോകനാഥ് ബെഹ്റ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്തു നടന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇതുസംബന്ധിച്ച തീരുമാനമെടുത്തത് ധാരണാപത്രം ഒപ്പുവച്ചു ലൈഫ് മിഷൻ ഉപഭോക്താക്കൾക്ക് വൻ വിലക്കുറവിൽ നിർമ്മാണ സാമഗ്രികൾ ലഭ്യമാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് വിവിധ കമ്പനികളുമായി ധാരണാപത്രം ഒപ്പുവച്ചു മിഷൻ രണ്ടാം ഘട്ടത്തിൽ ഭൂമിയുള്ള ഭവനരഹിതർക്കായി ് നിർമിക്കുന്ന വീടുകൾക്കാണ് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ ലഭിക്കുക

ബി ഐ അന്വേഷണിക്കണമെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യൂണിവേഴ്സിറ്റി കോളേജ് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സെക്രട്ടറിയേറ്റിന് മുന്നിൽ കെ

യുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരപ്പന്തൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുക ആയിരുന്നു അദ്ദേഹം മധ്യപ്രദേശിൽ നടന്ന വ്യാപം അഴിമതിയേക്കാൾ ഗുരുതരമായ ക്രമക്കേടുകളാണ് ഭരണഘടനാ സ്ഥാപനങ്ങളായ കേരള സർവ്വകലാശാലയിലും പി എസ്

കേരള സർവകലാശയിലേയും പി സി യിലേയും അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്ന വൈസ് ചാൻസിലറേയും പി

സി ചെയർമാനേയും ഗവർണ്ണർ പുറത്താക്കണമെന്നും ശ്രീ മുല്ലപ്പളളി പറഞ്ഞു

യു പ്രതിഷേധം യൂണിവേഴ്സിറ്റി കോളേജ് വിഷയത്തിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ കടന്ന കെ എസ്

മതിൽ ചാടിക്കടന്നാണ് ഒരു വനിത ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ സെക്രട്ടേറിയറ്റിനുള്ളിൽ എത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മന്ദിരത്തിന് സമീപംവരെ എത്തിയ ഇവർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് കെ

യു നടത്തുന്ന നിരാഹാരസമരം ഇന്ന് മൂന്നാം ദിവസത്തിലേയ്ക്ക് കടന്നു

പ്രവർത്തകരെ പിരിച്ചൂവിടുന്നതിനായി പൊലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു

സംസ്ഥാനത്തെ ആറ് ഗവൺമെന്റ് കോളേജുകളിൽ പുതിയ പ്രിൻസിപ്പൽമാരെ നിയമിച്ചു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പലിനെതിരെ ശക്തമായ ആരോപണം ഉയർന്നിരുന്നു

വന അദാലത്ത് വനംവനൃജീവി വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് അടിയന്തിര പരിഹാരം കാണുന്നതിനായി വകുപ്പ് ത്രിരുവനന്തപുരം ജില്ലയിൽ സംഘടിപ്പിക്കുന്ന വന അദാലത്ത് ആൾസ്റ്റ് ഒമ്പതിന് നടക്കും

കലാലയങ്ങൾ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ പൊതു ജനങ്ങൾ തുടങ്ങിയവർക്കെല്ലാം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമാകാൻ അവസരമുണ്ട് ഞങ്ങളുടെ കോഴിക്കോട് പ്രതിനിധി നസീർ ബാബുവിന്റെ റിപ്പോർട്ട്

അതേ സമയം മഹേന്ദ്രസിംഗ് ധോണി ടീമിൽ ഉണ്ടാകുമോ എന്ന തീരുമാനത്തിൽ ഇതുവരെ വൃക്തതയില്ല ലോകകപ്പ് സെമി ഹൈനലിൽ ഇന്ത്യ പരാജയപ്പെട്ടതിനെ തുടർന്ന് ധോണിയുടെ ക്രിക്കറ്റ് ഭാവിയെകുറിച്ച് അഭ്യൂഹങ്ങൾ ശക്തമാണ്

കർക്കിടക ചികിത്സയ്ക്കും ഇന്ന് തുടക്കമാകും

ക്ഷേത്രങ്ങളും സ്പാപ്പ്സ്കാരിക കേന്ദ്രങ്ങളും രാമായണമാസാചരണത്തോട് അറ്റുബ്ന്ധിച്ചുളള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്